നഷ്ടപ്പെട്ട പ്രധാന രേഖകൾ നൽകുന്നതിന് അടുത്തമാസം ആദ്യവാരം അദാലത്തുകൾ സംഘടി പ്പിക്കും

ഇന്ന് തിരുവോണം പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആഘോ ഷങ്ങൾ ഒഴിവാക്കി മലയാളികൾ ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾ ഇന്നാരംഭിക്കും പ്രളയക്കെടുതിയിൽ കേടായ വീടുകളുടെയും കടകളുടെയും വിവ രവും നഷ്ടങ്ങളും ഗവൺമെന്റ് തന്നെ തിട്ടപ്പെടുത്തി നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇതിന് വ്യക്തി കൾ അപേക്ഷ ന ൽ കേ ണ്ട തി ല്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുരിതബാ ധിതമായ വീടുകളുടെ നിലവിലെ സ്ഥിതി സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ രേഖപ്പെടുത്തി ലഭ്യമാക്കാൻ മൊബൈൽആപ്പ് തയാറാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ദുരിതാശ്വാസ ക്യാംപുകളിൽ നിന്ന് വീടുക ളിലേക്ക് തിരിച്ച് പോവുന്നവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി നൽകുമെന്ന് പ്രഖ്യാപിച്ച പതിനായിരം രൂപ ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു റേഷൻകാർഡ് ആധാർകാർഡ് തുടങ്ങിയ നഷ്ടപ്പെട്ട പ്രധാന രേഖ കളും സർടിഫിക്കറ്റുകളും ഒറ്റകേന്ദ്രത്തിൽ നിന്ന് നൽകും ഇതിനായി അടുത്തമാസം ആദ്യവാരം മുതൽ അദാലത്തുകൾ സംഘടിപ്പിക്കും

ചെറുകിട വൃവ സായങ്ങൾ കച്ചവടസ്ഥാപനങ്ങൾ എന്നിവ ഇല്ലാതായവർക്ക് പലിശ യില്ലാതെ പത്ത് ലക്ഷം രൂപ ലഭ്യമാക്കുന്ന കാര്യം പരിഗണിച്ചുവരിക യാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവർക്ക് വായ്പാ തിരിച്ചടവിന് ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ സംസ്ഥാനതല ബാങ്കിങ് കമ്മിറ്റി മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രവർത്തന മൂലധന വായ്പ പുനക്രമീകരിക്കും കൃഷി പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ സഹാ യവും പരിഗണനയിലുണ്ട് മൃഗങ്ങൾക്ക് ഭക്ഷണം ഉറപ്പ് വരുത്തും വാഹനങ്ങളുടെ ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നത് വേഗത്തിൽ ആക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ശുചീകരണ പ്രവർത്തനത്തിനിടെ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ പ്രത്യേക ശ്രദ്ധവേണമെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു അഴുകിയ മാലിന്യങ്ങൾ സ്വന്തം സ്ഥലത്ത് സംസ്ക രിക്കണം അഴുകാത്ത മാലിന്യങ്ങൾ ജലാശയങ്ങളിലോ പൊതുസ്ഥ ലങ്ങളിലോ നിക്ഷേപിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇയിൽ നിന്ന് ലഭിക്കുന്ന സഹായം സംബന്ധിച്ച് യു

ഇ ഭര ണാധികാരിയാണ് പ്രധാനമന്ത്രിയെ വിവരമറിയിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തി ടിറ്ററിലൂടെ പ്രധാനമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഇയുടെ സഹായ വാഗ്ദാനം കേന്ദ്രം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു

ഇ സഹായം സംബന്ധിച്ച് തന്നെ അറി യിച്ചത് വ്യവസായി എം എ യൂസഫലിയാണെന്നും പിണറായി വിജ യൻ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസനിധിയിലേക്ക് സഹായങ്ങൾ തുടരു കയാണ്

മുഖ്യ മന്ത്രിയുടെ ദുരിതാശ്ചാസനിധിയിലേക്ക് ഒരു ദിവസത്തെ ശമ്പളം സംഭാവന ചെയ്യാൻ സുപ്രിംകോടതി ജീവനക്കാർക്ക് രജിസ്ട്രാർ നിർദേശം നൽകി

ഡൽഹി പൊലിസ് ഒരുകോടി രൂപ കേരളത്തിലെ പ്രളയക്കെടുതിയിലേക്ക് സഹായമായി പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസനിധിയിലേക്ക് സംഭാവന ചെയ്തു പ്രളയക്കെടുതിയിൽപെട്ട ഒരു ഗ്രാമം ദത്തെടുക്കുമെന്ന് ആംആദ്മി പാർട്ടി എം പി സഞ്ജയ്സിങ് അറിയിച്ചു

സംസ്ഥാനം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പ്രളയക്കെടുതിയുടെ പശ്ചാതലത്തിൽ ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിച്ചതെന്ന് മന്ത്രാലയം ടിറ്ററിൽ അറിയിച്ചു

കരുണാകരൻ എം പി പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ദുരിതബാധിതരെ സഹായിക്കാൻ ലോകരാജ്യങ്ങൾ തയാറായിട്ടും അത് നിഷേധിക്കുന്ന കേന്ദ്രനിലപ്പാട് പ്രതിഷേധാർഹ മാണെന്നും അദ്ദേഹം പറഞ്ഞു ് ് പ്രളയത്തെതുടർന്ന് സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമമി ല്ലെന്ന് മന്ത്രി പി

പ്രളയത്തിൽ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക അദാലത്ത് നടത്തി എത്രയും വേഗം കാർഡ് നൽകും പുതിയ റേഷൻകാർഡിന് അപേ ക്ഷിക്കുമ്പോൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം മതി യെന്നും മുദ്രപത്രം ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിനെതുടർന്ന് നെല്ല്യാമ്പതി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു പാലക്കാട് ചേർന്ന അവലോകനയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തകർന്ന റോഡിന് ബദൽ സംവിധാനങ്ങൾ പരിശോദിക്കാൻ പൊതു മരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

് ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണ കൂടം ജാഗ്രത പുലർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു ഇത് ദുരിതാശ്വാസ പ്രവർത്തന ങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രള യക്കെടുതി നേരിടുന്നവരുടെ കടങ്ങൾ എഴുതിതള്ളണമെന്നും ചെ ന്നിത്തല ആവശ്യപ്പെട്ടു

പ്രളയബാ ധിത മേഖല കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഈ മാസം സന്ദർശിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു

അണക്കെ ട്ടിലെക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്

ഇന്ന് തിരുവോണം പ്രളയം ബാക്കിവെച്ച ദുരിതങ്ങൾക്കുമേൽ നന്മ യുടെ സമൃദ്ധി നിറയുന്ന പ്രത്യാശയാണ് ഇത്തവണത്തെ ഓണം വിഭവ സമൃദ്ധമായ സദ്യക്കും ഓണക്കോടിക്കും അവധി നൽകി പ്രള യത്തിൽ സർവതും നഷ്ടപ്പെട്ട സഹജീവികൾക്ക് കൈത്താഹ് നൽകു കയാമ് മലയാളി അതിജീവനത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേ ശവുമായി ദുരിതാശ്ചാസ കൃാംപുകളിലും പ്രളയബാധിത മേഖലക ളിലും ലക്ഷക്കണക്കിനാളുകൾക്ക് തൂശനിലയിൽ സദ്യയൊരുക്കുന്ന മലയാളിയുടെ കരുതൽ ലോകത്തിനു തന്നെ മാതൃകയാണ്

പഴം പ്രഥമൻ ഉൾപ്പെടെ വിഭവ സമൃദ്ധമായ സദ്യ ഇന്ന് പ്രസാദ ഊട്ടായി നൽകും ഉത്രാടപ്പുലരിയിൽ കാഴ്ചക്കുലയായി ലഭിച്ച പഴ മാണ് പായസത്തിന് ഉപയോഗിക്കുന്നത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എല്ലാ മലയാളികൾക്കും ഓണാശം സകൾ നേർന്നു പ്രളയം നാശം വിതച്ച കേരളത്തിൽ ഓണം പ്രത്യാ ശയുടെ പുതിയ തുടക്കമാവട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു പ്രളയ ദുരിതത്തിൽ നിന്നു മുക്തരായി നിശ്ചയദാർഢ്യത്തോടെ ജീവിതം പുനർനിർമിക്കുന്ന കേരളത്തിലെ എല്ലാവർക്കും സന്തോഷവും സമാ ധാനവും കൈവരട്ടെയെന്നും രാഷ്ട്രപതി ആശംസിച്ചു ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക് മത്സരങ്ങൾ ഇന്നാരം ഭിക്കും

ആറാംദിവസമായ ഇന്നലെ രണ്ട് സ്വർണവും ഒരു വെള്ളിയും നാല് വെങ്കലവും ഇന്ത്യ നേടി

് ട്രാക്ക് പുനസ്ഥാപിക്കൽ ജോലി നടക്കുന്നതിനാൽ ഇന്നത്തെ പതി നാറ് പാസഞ്ചർ ട്രെയിനുകളും ആറ് മെമു സർവീസുകളും റദ്ദാക്കി യതായി റെയിൽവെ അറിയിച്ചു കൊല്ലം പുനലൂർ കൊല്ലം ചെങ്കോ ട്ട പുനലൂർ ഗുരുവായൂർ ആലപ്പുഴ കായംകുളം ഗുരുവായൂർ തൃശൂർ കോട്ടയം കൊല്ലം കോട്ടയം വഴി സർവീസ് നടത്തുന്ന എറ ണാകുളം കായംകുളം പാസഞ്ചർ ട്രെയിനുകളും ഇവയുടെ തിരി ച്ചുള്ള സർവീസുകളുമാണ് റദ്ദാക്കിയത് എറണാകുളത്തിനും കൊല്ല ത്തിനുമിടയിൽ ആലപ്പുഴ വഴി ഓടുന്ന നാലും കോട്ടയം വഴി സർവീസ് നടത്തുന്ന രണ്ടും മെമു സർവീസുകളും റദ്ദാക്കി ് മഴക്കെടുതി രക്ഷാദൌതൃത്തിൽ പങ്കുചേർന്ന കൊല്ലം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ ഇന്ന് ആദരിക്കും വൈകിട്ട് നാലിന് വാടി കടപ്പുറത്ത് ജില്ലാ ഭരണകൂടവും കൊല്ലം കോർപ്പറേഷനും ഫിഷറീസ് വകുപ്പും മത്സ്യഫെഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന അനുമോദന ചടങ്ങ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും കൊല്ലം കോർപ്പറേഷൻ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന പുതുവസ്ത്രങ്ങൾ മന്ത്രി കെ രാജു വിതരണം ചെയ്യും ് ് ് ് ് ് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാറിനെയും ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി ഗ്രാമപ ഞ്ചായത്ത് സെക്രട്ടറി എൽ പ്രസന്നകുമാരിയെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ നടത്തു ന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് ഇവരെ പഞ്ചായത്ത് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത് വയനാട് പനമരം ഗവ ഹയർസെക്കൻഡറി സ്കൂളിലെ ക്യാംപ് സ്റ്റോറിൽ നിന്ന് അവശ്യവസ്തുക്കൾ കടത്താൻ ശ്രമിച്ച് അറസ്റ്റിലായ വില്ലേജ് ഓഫിസറെയും അസിസ്റ്റന്റിനെയും കോടതി റിമാന്റ് ചെയ്തു പനമരം സ്പെഷ്യൽ വില്ലേജ് ഓഫിസർ എം പി ദിനേശ് വില്ലേജ് അസിസ്റ്റന്റ് സിനീഷ് തോമസ് എന്നിവർ ഇന്നലെ പുലർച്ചെയാണ് സ്വന്തം വാഹ്നങ്ങളിൽ സാധനങ്ങൾ കടത്താൻ ശ്രമിക്കവെ പിടിയി ലായത് ഇവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു

അരിയും പലവൃ ഞ്ജനങ്ങളും അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്

കാസർകോട് ശാന്തിപ്പള്ളം ബദരിയ്യ റോഡിലെ റമീസ് റാസാണ് മരിച്ചത് ് പത്തനംതിട്ട കലഞ്ഞൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു പാടം കിഴക്കേ വെള്ളംതെറ്റി സ്വദേശി കമലൻ സ്വാമിയാണ് മരിച്ചത് ് കൊല്ലം കാവനാട് പാചകവാതക ബുള്ളറ്റ് ടാങ്കർ ട്രെയിലറിന് പിന്നിലിടിച്ച് ക്യാബിൻ തകർന്നു വാതക ചോർച്ചയില്ലെന്ന് പൊലീസ് പറഞ്ഞു

പത്തനംതിട്ട ജില്ലയിലെ വിവിധ ദുരിതാശ്രാസ് ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി

പാലക്കാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാംപുകളുടെ എണ്ണം അഞ്ചായി കുറഞ്ഞു